നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടു വരാൻ കേന്ദ്ര നിർദ്ദേശം

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സിനിമ ടെലിവിഷൻ പരിപാടികൾ ചിത്രീകരിക്കാം ക്യേന്ദ്രം മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി

കേരള നിയമസഭയുടെ ഏകദിന സമ്മേളനം ഇന്ന്

നിന്നും ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോകോവിച്ച് പിന്മാറി

ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമമനുസരിച്ച് അർഹരായ ഭക്ഷ്യധാനൃ വിഹിതം യോഗൃതയുള്ള എല്ലാ ദിവ്യാംഗർക്കും സംസ്ഥാനങ്ങൾ ഉറപ്പ് വരുത്തണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം അന്ത്യോദയ അന്നയോജന പദ്ധതിയിൽ അംഗമാകുന്നതിനുള്ള മാനദണ്ഡങ്ങളിലൊന്ന് അംഗവൈകലൃമാണെന്നും വൈകലൃമുള്ളവർ സമൂഹത്തിലെ ദൂർബല വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരാണെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് റേഷൻ കാർഡില്ലാത്ത ദിവ്യാംഗർക്കും ആത്മനിർഭർ ഭാരത് പാക്കേജിന്റെ ഗുണഫലം ലഭ്യമാക്കണം

ചിത്രീകരണത്തിന് പാലിക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള മാർഗങ്ങൾ പരിഗണിച്ചാണ് മന്ത്രാലയം പ്രത്യേക മാനദണ്ഡങ്ങൾക്ക് രൂപം നൽകിയത് ശാരീരിക അകലം ചിത്രീകരണ സ്ഥലങ്ങളി ലേക്കുള്ള പ്രവേശനവും മടക്കവും ശുചിത്വം ജീവനക്കാരുടെ സുരക്ഷ അടുത്തിടപഴകുന്നത് കുറയ്ക്കൽ യാത്രാ അനുബന്ധ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കൽ രോഗ നിരീക്ഷണത്തിനുള്ള സമ്പർക്ക വിലക്ക് എന്നിവ ഉൾപ്പെടെ ഈ മേഖലയിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദേശങ്ങൾ പാലിക്കണം ക്യാമറയ്ക്ക് മുന്നിലുള്ള അഭിനേതാക്കൾ ഒഴികെയുള്ളവർക്ക് മുഖാവരണം നിർബന്ധമാക്കി

ദശ ലക്ഷക്കണക്കിന് ആളുകൾ കോവിഡിനെ തുടർന്ന് ഈ മേഖലയിൽ തൊഴിലില്ലായ്മ നേരിടുകയാണെന്നും കേന്ദ്ര മാർഗ്ഗ നിർദേശങ്ങൾ ഇതിന് പരിഹാരമാകുമെന്നും മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

അതിനിടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ നൽകുന്നതിന് തമിഴ്നാട് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഫലപ്രദമാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്

പുതിയ ്രോഗികളുടെ എണ്ണത്തിൽ കുറവ് പന്നതിനെ തുടർന്നാണിത്

അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ രോഗബാധിത മേഖലകളിൽ കൊണ്ടു പോകരുതെന്നും നിർദ്ദേശമുണ്ട്

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ചേരുന്ന ഒരു ദിവസത്തെ സമ്മേളനത്തിൽ ധനബില്ല് പാസ്സാക്കുന്നതിന് പുറമെ രാജ്യസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നടക്കും

എഫ് സർക്കാരിനെതിരെ യു ഡി

രാജ്യസഭ ഉപതെരഞ്ഞെടുപ്പിൽ എൽ

എഫിനു വേണ്ടി എം വി ശ്രേയാംസ് കുമാറും യു

ആന്റിജൻ പരിശോധനയിൽ രോഗബാധകണ്ടെത്തുന്നവർക്കും കണ്ടെയ്ൻമെന്റ സോണുകളിൽ നിന്നു വരുന്നവർക്കും വ്യോട്ടു ്ട്ചയ്യാൻ പ്രത്യേക് ബൂത്ത് ഒരുക്കും

കൊറോണ സാഹചര്യത്തിൽ ജിഎസ്ടി അപ്പീലുകളിൽ തീർപ്പാക്കുന്നതിനായാണ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർമാർക്ക് സിബിഐസി കത്തയച്ചത് വെർച്ചൽ ഹിയറിങ് നടത്തുന്നതിനുള്ള മാർഗ്ഗ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്

വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് ചീഫ് ്സെക്രട്ടറിക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ കത്തയച്ചത്

പാവപ്പെട്ടവർക്കായി ഒട്ടേറെ ക്ഷേമപദ്ധതികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുമ്പോഴാണ് ഇത്തരം ദാരുണ സംഭവം ഉണ്ടായതെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു

മുംബൈയിലെ ഡി

ഒ ഗസ്റ്റ് ഹൌസിലായിരുന്നു ചോദ്യം ചെയ്യൽ

ഇതോടെ പുതുച്ചേരി പരിധിയിലും പുറത്തേക്കുമുള്ള സഞ്ചാരത്തിനും ചരക്ക് കടത്തിനും നിയന്ത്രണമില്ലാതായി

ഡബിൾസിൽ ജോക്കോവിച്ച് ക്രാജിനോവിക് സഖ്യത്തിന് പകരം നിക്കോള കാസിക് ഡൂസാൻ ലജോവിക് എന്നിവർ കളിക്കും കോവിഡ് മഹാമാരിയെ തുടർന്ന് എ

പി ടൂർണമെന്റിൽ കഴിഞ്ഞ മാർച്ചിനുശേഷം നടക്കുന്ന ആദ്യ മത്സരമാണ് വെസ്റ്റ് ആന്റ് സതേൺ ഓപ്പൺ

രക്ഷപ്പെടാനായി ഇടുങ്ങിയും വഴിയിലൂടെ ജനങ്ങൾ തിടുക്കത്തിൽ നീങ്ങിയതാണ് ദുരന്തത്തിസ്റ്റ് കാർണമായതെന്നാണ് നിഗമനം

എസ് ആർ ടി

പ്രത്യേക അന്തർ സംസ്ഥാന സർവ്വീസുകൾ നാളെ മുതൽ ആരംഭിക്കും വിവിധ ഡിപ്പോകളിൽ നിന്ന് ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിലേക്കാണ് സർവ്വീസ്